കേരളമടക്കം ഏതാനും സംസ്ഥാനങ്ങളിൽ ഇളവുകൾ ഇപ്പോഴില്ല

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി വാർത്തകൾ വിശദമായി കോവിഡ് അൺലോക്ക് അഞ്ചാംഘട്ടത്തിലെ ഇളവുകളും മാർഗ്ഗ നിർദ്ദേശങ്ങളും ഇന്ന് പ്രാബല്യത്തിൽ വരും സ്കൂളുകൾ സിനിമാ തിയേറ്ററുകൾ മൾട്ടി പ്ലക്സുകൾ നീന്തൽ കുളങ്ങൾ എന്നിവ നിയന്ത്രണങ്ങളോടെ തുറക്കാൻ അഞ്ചാം ഘട്ടത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് സാമൂഹിക അകലം പാലിച്ച് പകുതിയോളം സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാമെന്ന് കേന്ദ്ര മാർഗ്ഗ രേഖ പറയുന്നു എന്നാൽ കേരളമടക്കം ഏതാനും സംസ്ഥാനങ്ങളിൽ ഇളവുകൾ ഇപ്പോൾ നടപ്പാക്കേണ്ടതില്ലെന്നാണ് തീരുമാനം സ്കൂളുകൾ തുറക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹാജർ നിർബന്ധമാക്കിയിട്ടില്ല

മറ്റ് ജില്ലകളിലും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി

രും രോഗവ്യാപന നിരക്കിൽ കുറവുണ്ടായതിനെത്തുടർന്ന് കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കൊല്ലം ജില്ലയിലെ അഴീക്കൽ ഹാർബർ തുറന്നു കോവിഡ് ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം കടലിൽ പോകാൻ അനുമതി നൽകിയിട്ടുണ്ട്

രംഭ മങ്ങോട് മെഡിക്കൽ കോളേജിനെ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രമായ പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ കോവിഡ് ആശുപത്രിയായി ഉയർത്തി ഓക്സിജൻ സഹായം ആവശ്യമായ രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് നടപടി രംഭ വ്യക്തിപരമായ അച്ചടക്കവും ശ്രദ്ധയും കൊവിഡ് നിയന്ത്രണത്തിന് അനിവാര്യമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആകാശവാണിയോട് പറഞ്ഞു

ജോസഫ് ചാക്കോ പറഞ്ഞു രും തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യഘട്ട പ്രവർത്തനം ഇന്ന് തുടങ്ങും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യും കോവിഡ് ഉൾപ്പെടെ വൈറസ് രോഗ നിർണ്ണയത്തിന് ആവശ്യമായ ആധുനിക സാമഗ്രികൾ സജ്ജമാക്കിയാണ് ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങുന്നത്

ജയരാജൻ കെ

ശൈലജ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ദര ഇന്ന് ലോക കൈകഴുകൽ ദിനം

രോഗസാധ്യത കുറയ്ക്കാനും രോഗവ്യാപനം നിയന്ത്രിക്കാനും ഉപയോഗിച്ച് വെള്ളവും കൈകഴുകുന്നതിലൂടെ സാധ്യമാകുമെന്ന സന്ദേശം ലോകത്തെ എല്ലാ ജനസമൂഹങ്ങളിലും എത്തിക്കാനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് കോവിഡ് മഹാമാരിയുടെ വ്യാപനം തീവ്രമായിരിക്കുന്ന കാലത്ത് ലോക കൈകഴുകൽ ദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി കെ

ഫലപ്രദമായ കൈകഴുകലിന്റെ വശങ്ങൾ എല്ലാവരിലും എത്തിക്കണമെന്ന് മന്ത്രി നല്ല തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു രുര മുൻ രാഷ്ട്രപതി ഡോ

കലാമിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും വിവരിക്കുന്ന പീപ്പിൾസ് പ്രസിഡന്റ് എന്ന പേരിൽ ഫിലിംസ് ഡിവിഷൻ തയ്യാറാക്കിയ ഡോക്യുമെന്ററി യൂട്യൂബ് ചാനലിലും വെബ്സൈറ്റിലും പ്രദർശിപ്പിക്കും

കാഴ്ച പരിമിതരുടെ സ്വാതന്ത്ര്യ ബോധത്തിന്റെയും സ്വാശ്രയ ബോധത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രഖ്യാപനമാണ് വൈറ്റ് കെയിൻ ദിനാചരണം സഞ്ചാര സഹായിയായ വൈറ്റ് കെയിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും ദിനാചരണം ലക്ഷ്യമിടുന്നു ഇതോടനുബന്ധിച്ച് ആഗോള ദേശീയ പ്രാദേശിക തലങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

കമാൽ പാഷ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു

പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ഫ്രൈഡേ ക്ലബ്ബും സംയുക്തമായി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

പച്ചത്തുരുത്തുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്

രുര ജല ഗതാഗത വകുപ്പിന്റെ വാട്ടർ ടാക്സി സർവ്വീസും കാറ്റാമറൈൻ ബോട്ട് സർവ്വീസും ഇന്നാരംഭിക്കും

ടാക്സികൾ ലഭിക്കുന്നതിനായി പ്രത്യേകം മൊബൈൽ നമ്പർ നമ്പർ ഉടൻ പ്രസിദ്ധപ്പെടുത്തും മൂന്ന് വാട്ടർ ടാക്സികൾ കൂടി ഉടൻ നീറ്റീലിറക്കുമെന്ന് ജലഗതാഗത വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി രും എറണാകുളത്തെ ചമ്പക്കര നാലുവരി പാലം ഇന്ന് ഗതാഗതത്തിന് തുറന്നുകൊടുക്കും

ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി പാലം നാടിന് സമർപ്പിക്കും

ഷാർജയിൽ വൈകിട്ട് ഏഴരയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

മാണിയുടെ ഇടതുമുന്നണി പ്രവേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും

രംഭ തൃശൂർ വാഴാനി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകി വടക്കാഞ്ചേരി പുഴയുടെ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് രംഭ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പാലക്കാട് പോത്തുണ്ടി ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ തുറക്കും

ഫറോക്ക് ബാലുശ്ശേരി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രികൾക്കും കോഴിക്കോട് ജനറൽ ആശുപത്രിക്കുമാണ് തുക അനുവദിച്ചത്